അടുത്ത മൂന്നര വർഷത്തിനുള്ളിൽ റെയിൽവേ പൂർണ്ണമായും വൈദ്യുതിവത്കരിക്കുമെന്ന് കേന്ദ്രം

എൽ എമാർ ഹൈക്കോടതിയിൽ

രാജ്യത്ത് കോപ്പിഡ് പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കാനൂള്ളം ് പരിശ്രമത്തിൽ ശ്രദ്ധേയമായ പുരോഗതി

മുൻ ഐ

സെക്രട്ടറി എം ശിവശങ്കറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു നടപടി ചീഫ് സെക്രട്ടറി തല സമിതിയുടെ റിപ്പോർട്ടിൻമേൽ

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ന്യൂയോർക്കിൽ നടക്കുന്ന ചടങ്ങിൽ വിർചൽ അഭിസംബോധനയാവും പ്രധാനമന്ത്രി നടത്തുക സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം നോർവെ പ്രധാനമന്ത്രിയും ഐക്യരാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും പങ്കെടുക്കും

സ്വയംപര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ആത്മനിർഭർ പദ്ധതി പ്രാവർത്തികമാക്കാൻ ഊർജ്ജമേഖല പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ പിയൂഷ്ഗോയൽ പറഞ്ഞു

എൽ എമാർ ഹൈക്കോടതിയെ സമീപിച്ചു

എ മാരെ അയോഗ്യരാക്കണമെന്നു് കോൺഗ്രസ് നല്കിയ അപേക്ഷയുടെ അടിസ്മാന്ത്തിലാണ് നിയമസഭ സെക്രട്ടറി നോട്ടീസ് അയച്ചത്

തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നടന്ന നിയമസഭ കക്ഷി യോഗത്തിൽ വിമത എം എൽ

ഭരണഘടനയുടെ പത്താം പട്ടിക അനുസരിച്ച് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ചീഫ് വിപ്പ് കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു

സൈഡസ് കാഡില കേന്ദ്ര ബയ്യോട്ടെക്നോളജി വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ വ്വിക്സിപ്പിച്ചെടുത്ത സൈക്കോ ഡി എന്ന പ്രതിരോധ വാക്സിൻ മുനുഷ്യരിൽ പരീക്ഷണം ആരംഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീവിജയ

അതിനിടെയാണ് സൈഡസ് കാഡില പുതിയ പ്രതിരോധ വാക്സിൻ നിർമ്മിച്ചെടുത്തത്

രണ്ട് ഘട്ടമായിട്ടാണ് സൈക്കോവ് ഡിയുടെ പരീക്ഷണം നടക്കുന്നതെന്ന് ബയോടെക്നോളജി കൌൺസിൽ അറിയിച്ചു സൈഡസ് കാഡില കമ്പനിയുടെ അഹമ്മദാബാദിലെ കേന്ദ്രത്തിൽ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ മരുന്നിന്റെ പ്രാരംഭ പരീക്ഷണഘട്ടം പൂർത്തിയാക്കിയിരന്നു

ന്യൂസ്ഡസ്ക് ആകാശവാണി

കഴിഞ്ഞ മൂന്ന് ആഴ്ചയായി രോഗബാധിതരുടെ എണ്ണം വൻ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചത്

ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം പതിനായിരം കടന്നു

സംസ്ഥാനത്ത് ഇന്ന് രണ്ട് മരണവും റ്റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

ഡി

നടത്താൻ തീരുമാനിച്ച എല്ലാ സമരങ്ങളും മാറ്റിയതായി യു ഡി എഫ്

ശ്രീരാമകൃഷ്ണനെ തത്സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നല്കി സ്വർണ്ണക്കടത്ത് കേസിലെ കുറ്റവാളികളുമായി സ്പീക്കർക്കുള്ള അടുപ്പം സംശയകരമാണെന്നാരോപിച്ചാണ് നോട്ടീസ് മഞ്ചേരി എം

എ എം

ഇത് രണ്ടാം തവണ്യൂർണ്ട് ജാദവിനെ കാണാൻ ഇന്ത്യൻ സംഘത്തിന് ഇത്തരൃത്തിലുള്ള അനുമതി ലഭിക്കുന്നത്